കേരളത്തിലുണ്ടാകരുതെന്നാണ് ഗവണ്മെന്റിന്റെ ആഗ്രഹമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

വൈദികനായിരുന്ന റോബിൻ വടക്കുംചേരിയെ വൈദികവൃത്തിയിൽ നിന്ന് മാർപാപ്പ നീക്കം ചെയ്തു

തുടക്കം

കൊച്ചിയിൽ റോട്ടറി ഇന്റർനാഷണലിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടപ്പാക്കുന്ന വിവിധ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഈ ലക്ഷ്യം മുൻനിർത്തി സംസ്ഥാന ഗവൺമെന്റിന്റെ പാർപ്പിട പദ്ധതിയായ ലൈഫ് മിഷന്റെ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്തവർക്കും പ്പൂട്ട് നിർമിച്ചു നൽകാനുള്ള പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മുഖ്യിമുന്തി പറഞ്ഞു

വിവിധ മേഖലകളിൽ നിസ്തുലക്കും സ്തുത്യർഹവുമായ സേവനം കാഴ്ചവയ്ക്കുന്ന റോട്ടറി ഇന്റർനാഷണലുമായി പല രംഗങ്ങളിലും സഹകരിച്ചു പ്രവർത്തിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച വിശപ്പുരഹിത പദ്ധതിയിലെ ആദ്യ ജനകീയ ഹോട്ടൽ ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി തോമസ് ഐസക്

ആവശ്യക്കാർക്കു ഇതുപയോഗിച്ച് സൌജന്യമായി ഭക്ഷണം ലഭ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു

ഇതിന്റാ്യുള്ള ലേലം ചൊവ്വാഴ്ച റിസർവ് ബാങ്കിന്റെ മുംബൈ ഷ്ട്രോർട്ട് ഓഫീസിൽ ഇ കുബേർ സംവിധാനം വഴി നടക്കും

കാലിത്തീറ്റ വിലവർദ്ധന വേനൽക്കാലമായതിനാൽ ഉൽപാദനത്തിലുണ്ടായ കുറവ് എന്നിവ കണക്കിലെടുത്ത് പാൽ വില വർദ്ധിപ്പിക്കണമെന്ന് മേഖലാ യൂണിയനുകൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അടുത്തകാലത്തു വില വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ വീണ്ടും വേണ്ടെന്ന് ഡയറക്ടേഴ്സ് ബോർഡ് വർദ്ധന യോഗം തീരുമാനിക്കുകയായിരുന്നു അതേസമയം കനത്ത ചൂടുകൊണ്ട് കർഷകർക്കുണ്ടായ നഷ്ടവും പാൽ ഉൽപാദനക്കുറവും നികത്താൻ ലിറ്ററിനു മൂന്ന് രൂപ നിരക്കിൽ ഇൻസന്റീവ് നൽകാൻ സർക്കാരിനോട് അഭ്യർത്ഥിക്കാനും യോഗത്തിൽ തീരുമാനമായി

എസ്ട്രി കൌൺസിലിന്റെ തീരുമാനം പ്രാബലൃത്തിലാകുന്നതിന്റെ ഭാഗ്മായാണ് പുതിയ വിലയും പുതിയ സമ്മാന ഘടനയും ന്ടപ്പിലാക്കിയത്

അഗതിമന്ദിരം കോട്ടയം ചങ്ങനാശേരി തൃക്കൊടിത്താനത്തെ അഗതിമന്ദിരത്തിലെ അന്തേവാസി മരിച്ചത് ന്യൂമോണിയ ബാധ മൂലമെന്ന് പ്രാഥമിക റിപ്പോർട്ട് ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളജിൽ മരിച്ച അന്തേവാസിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് മരണകാരണം ന്യുമോണിയ ആണെന്ന് പറയുന്നത്

സംഭവത്തിൽ ആരോഗ്യ വകുപ്പും ജില്ലാ ഭരണകൂടവും അന്വേഷണം നടത്തുന്നുണ്ട്

പ്രാരംഭഘട്ടത്തിൽ നഗരപരിധിയിലെ ഫ്ളാറ്റുകളിലും റെസിഡന്റ്സ് കോളനികളിലൂമാണ് ഈ സേവനം ലഭ്യമാവുക

സംഭവത്തിൽ ദുബായിൽ നിന്നെത്തിയ രണ്ട് മലപ്പുറം സ്വദേശികൾ പിടിയിലായി

എയർ കസ്റ്റംസ് ഇന്റലിജൻസ് വിഭാഗമാണ് സ്വർണ്ണം പിടിച്ചെടുത്തത്

ഇടുക്കിയിലെ വിദൂര ഗ്രാമമായ കുണ്ട്ളയിൽ പച്ചക്കറി കൃഷിയിൽ വിജയഗാഥ സൃഷ്ടിച്ച കവിതാകുമാർ ് എന്ന കർഷകയുടെ അനുഭവമാണ് ഇന്ന് ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മൂനിയറ റിപ്പോർട്ടിൽ പങ്കുവയ്ക്കുന്നത്

ക്രിക്കറ്റ് ക്രൈസ്റ്റ്ചർച്ച് ടെസ്റ്റിൽ ന്യൂസിലാന്റിനെതിരെ രണ്ടാം ഇന്നിംഗ്സിലും ഇന്ത്യയ്ക്ക് ബാറ്റിംഗ് തകർച്ച

ഹനുമ വിഹാരി റിഷഭ് പന്ത് എന്നിവരാണ് രണ്ടാം ദിനം കളി അവസാനിപ്പിക്കുമ്പോൾ ക്രീസിൽ